പ്രധാനമന്ത്രിയുടെ റാലിയ്ക്കിടെ മിഡ്നാപൂരിൽ ഷെഡ് തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പശ്ചിമ ബംഗാളിനോട് കേന്ദ്രം

ലീഡ്സിൽ

ദുർബലമായ അഞ്ച് ഒന്നായാണ് മുമ്പ് ഇന്ത്യയെ കണ്ടിരുന്നതെന്നും എന്നാൽ ഇന്ന് അതിവേഗം വളരുന്ന സമ്പദ്ഘടനയായി ഇന്തൃ മാറിയെന്നും ശ്രീ

ഗവൺമെന്റ് മുന്നോട്ടുവയ്ക്കുന്ന അവസരങ്ങൾ യുവാക്കൾ പ്രയോജനപ്പെടുത്തുക മാത്രമല്ല പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും അവർ മുന്നിട്ടിറങ്ങുന്നത് ശുഭസൂചനകളാണ്

സ്വാതന്ത്ര്യത്തിനു ശേഷം ഉണ്ടായ രാഷ്ട്രീയ കുടുംബവാഴ്ചയ്ക്കു മാറ്റം വന്നതായും ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി

സമ്മേളനകാലത്ത് ഇരുസഭകളിലും പ്രത്യീപ്പക്ഷ് സഹകരണം ഗവൺമെന്റ് ആവശ്യപ്പെടും

അതിനിടെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഇന്നലെ ഡൽഹിയിൽ യോഗം ചേർന്ന് സമ്മേളനകാലത്ത് സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തി കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് എൻ

പി അധ്യക്ഷൻ ശരത്പവാർ ബി

പി നേതാവായ സതീഷ് ചന്ദ്ര മിശ്ര ആർ

ഡി യിൽ നിന്നും മിസാ ഭാരതി ഡി

കെ നേതാവായ ടി

ഇളങ്കോവൽ സി

യോഗാനന്തരം മാധ്യമങ്ങളെ കണ്ട ഗുലാംനബി ആസാദ് വർഷകാല സമ്മേളനം സുഗമമാക്കുക എന്നതാണ് നേതാക്കളുടെ തീരുമാനമെന്ന് അഭിപ്രായപ്പെട്ടു

കൂടാതെ പിന്നാക്ക സമുദായക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും ട്രാൻസ്ജന്റുകൾക്കുള്ള കമ്മീഷൻ രൂപീകരണവും മറ്റ് പ്രധാന വിഷയങ്ങളായിരിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൌരന്മാരുടെ മൌലികാവക്യാശങ്ങൾക്കെതിരാണ് ഹർജിയെന്ന് ഗവൺമെന്റിനുവേണ്ടി ക്ട്രൂന്ദ് നിയമ നീതി ന്യായ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി കെ

സക്സ്സേന ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അഭിപ്രായപ്പെട്ടു ജനപ്രാതിനിധ്യ നിയമത്തിൽ നിലവിലെ വ്യവസ്ഥ അംഗീകരിക്കപ്പെട്ടതാണെന്നും മറിച്ചുള്ള അവസ്ഥയ്ക്ക് നിയമം ഭേദഗതി ചെയ്യേണ്ടിവരുമെന്നും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബഞ്ച് സത്യവാങ്മൂലം പരിഗണിക്കവേ ചൂണ്ടിക്കാട്ടി

ജെ പി നേതാവ് അശ്വനി ഉപാധ്യായ ആണ് വിഷയം ഉന്നയിച്ച് സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യഹർജി ഫയൽ ചെയ്തത്

എന്നാൽ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബഞ്ച് ഹർജി അംഗീകരിച്ചില്ല

എ നിയമം നടപ്പാക്കുന്ന അസം മിസോറാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ് ഈ വിഷയമെന്ന് ബഞ്ച് വൃക്തമാക്കി

ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാനുള്ള രജിസ്ട്രിർമാരുടെയും ഓഹരി വിനിമയ ഏജന്റുമാരുടെയും സമയിപ്പുർധിയാണ് സെബി നീട്ടിയത്

കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിനു കീഴിലെ ആൾ ഇന്തൃ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ ആഭിമുഖ്യത്തിലാണ് സമ്മേളനം ദേശീയ ആയുഷ് കേന്ദ്രങ്ങളിലെ വിദ്യാഭ്യാസ ഗവേഷണ ചികിത്സാ സൌകര്യങ്ങളുടെ സംബന്ധിച്ചായിരിക്കും വികസനം ദിവസത്തെ രണ്ടു സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്യുക

നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യവേയാണ് ഷെഡിന്റെ ഒരു ഭാഗം തകർന്ന് വീണ് നിരവധി ആളുകൾക്ക് പരിക്കേറ്റത് പിന്നീട് ശ്രീ

അപകടത്തിൽ പരിക്കേറ്റ എല്ലാവർക്കും വേണ്ട ചികിൽസ പരിരക്ഷ ഉറപ്പാക്കുമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി വൃക്തമാക്കി

ഹരിയാനയിലെ ദിവാനിയിൽ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ രാജ്യത്തെ ആറാമത് കേന്ദ്രത്തിനാണ് തുടക്കമായത്

അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പൂടിനും ഇന്നലെ ഫിൻലന്റിലെ ഹെൽസിങ്കിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം അടച്ചിട്ട മുറിയിൽ ഇരുനേതാക്കളും രണ്ടു മണിക്കൂർ നേരം വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തി

അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ റഷ്യൻ ഇടപെടലിനെ പ്രസിഡന്റ് പൂടിൻ ശക്തമായി നിഷേധിച്ചതായി പൂടിനുമായി നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് അറിയിച്ചു

പ്രൂപ്ബ്സൈറ്റ് ബ്ലോഗ് വ്യക്തിഗത അക്കൌണ്ട് എന്നിവ ഇത്രീൽ ഉൾപ്പെടും കലാപം വിദേഷം നിയമ ലംഘനം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്ന അക്കൌണ്ടുകൾ മരവിപ്പിക്കാൻ അധികാരം നൽകുന്നതാണ് പുതിയ നിയമം

കാലവർഷക്കെടുതികൾ വിലയിരുത്തി നഷ്ടപരിഹാര തുക കാലതാമസം കൂടാതെ വിതരണം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വീജയൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ പ്രഫഷനൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നു കലക്ടർ അവധി പ്രഖ്യാപിച്ചു

ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ചേർത്തല കുട്ടനാട് കാർത്തികപ്പള്ളി താലൂക്കിലെ പ്രഫഷനൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചെങ്ങന്നൂർ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ചാവക്കാട് താലൂക്കുകളിലെ ഐ

എസ്

ബി എസ്

മഹാത്മാഗാന്ധി സർവ്വകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും കാലവർഷം ശക്തിയാർജ്ജിച്ചതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിലേയ്ക്കുള്ള നീരൊഴുക്ക് വർധിച്ചു മുല്ലപ്പെരിയാർ ഇടുക്കി ഡാമുകൾ തുറക്കേണ്ട സ്ഥിതിയില്ലെസ്സ് ജില്ലാകളക്ടർ അറിയിച്ചു അടുത്ത നാല് ദിവസത്തേക്ക് സംസ്ഥാനത്ത് ഉടനീളം ശക്തമായ മഴ തുടരും

ഇന്ത്യ ഇംഗ്ലണ്ട് കട്ടസ്റ്റ് പരമ്പര അടുത്തമാസം ആരംഭിക്കും